ഒഡീഷ മുഖ്യമന്ത്രിയായി് തുടർച്ചയായ അഞ്ചാം തവണയും നവീൻ പ്പട്നായിക് സത്യപ്രതിജ്ഞ ചെയ്തു

ആദ്യമത്സരം ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ

ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി നാളെയാണ് തുടർച്ചയായ രണ്ടാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുന്നത് ബിംസ്റ്റെക് അംഗരാജ്യങ്ങളിൽ നിന്ന് ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ ഹമീദ് ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന മൃാൻമാർ പ്രസിഡന്റ് യു വിൻ മിന്റ് നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ ഒലി ഭൂട്ടാൻ പ്രധാനമന്ത്രി ഡോ ലോട്ടെ ഷെറിങ് തായ്ലന്റിന്റെ പ്രത്യേക പ്രതിനിധി ഗ്രിസാഡ ബുണാർച് എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പ് നൽകിയതായി വിദേശകാരൃമന്ത്രാലയ വക്താവ് രവീഷ്കുമാർ അറിയിച്ചു ഇതോടൊപ്പം മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീൺകുമാർ ജുഗ്നൌത് കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സുരോൺബേ ജീൻബെകോവ് എന്നിവരും സത്യപ്രതിജ്ഞാചടങ്ങിന് ന്യൂഡൽഹിയിലെത്തും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നവരെ സ്വീകരിക്കാൻ പ്രത്യേക ഒരുക്കങ്ങളും രാജ്യതലസ്ഥാനത്ത് ആരംഭിച്ചുകഴിഞ്ഞു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രിയ്ക്കും കേന്ദ്രമന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും

വിവിധ വിഷയങ്ങളിൽ വിദേശകാര്യമന്ത്രിതല ചർച്ചകൾ നടക്കുമെന്നും യു എസ് സെക്രട്ടറി മൈക് പോംപിയോ അറിയിച്ചു വിവിധ മേഖലകളിൽ ഇന്ത്യയുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വൃക്തമാക്കി

ശ്രീ നരേന്ദ്രമോദിയുടെ വിജയത്തിൽ യു എസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപും വൈസ് പ്രിസ്റ്റിസ് മൈക്ക് പെൻസും അഭിനന്ദനം അറിയിച്ചിരുന്നു

ജെ ഡി അധ്യക്ഷൻ നവീൻ പട്നായിക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഒഡീഷ ഗവർണർ ഗണേഷി ലാൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു

സംസ്ഥാന തലസ്ഥാനമായ ഭുവനേശ്വറിലെ എക്സിബിഷൻ ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു

ജെ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ നവീൻ പട്നായിക്കിന് ആശംസകൾ അറിയിച്ചു

ജെ

ഇറ്റാനഗറിൽ നിട്ടക്കുന്ന ചടങ്ങിൽ ഗവർണ്ണർ ബി

ജെ പി നേടിയത്

വ്യാഴാഴ്ച രാവിലെ പത്തരയ്ക്ക് ഇഡിയുടെ ഡൽഹി ഓഫീസിൽ ഹാജരാകാനാണ് വദ്രയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് അനിരുദ്ധ ബോസ് എന്നിവരടങ്ങിയ ബഞ്ചാണ് ഹർജി തള്ളിയത് ഇപ്പോൾ മണ്ഡലത്തിലെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കോടതി കാർത്തി ചിദംബരത്തോട് നിർദ്ദേശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ശിവഗംഗ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വിജയിച്ചിരുന്നു

മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന പപ്പു ജയ്സ്ാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു

അയോധൃ ഡിവിഷണൽ കമ്മീഷണർ ഐ ജി തുടങ്ങിയവരും അന്വേഷണ സംഘത്തിൽ അംഗങ്ങളാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രണ്ട് ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു സംഭവത്തിൽ എക്സൈസ് വകുപ്പിലെ പത്ത് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു

ഹയർ സെക്കന്ററി വൊക്കേഷണൽ ഹയർസെക്കന്ററി ഡി

ഐ എന്നിവ ഒരു ഡയറക്ട്രേറ്റിന് കീഴിൽ കൊണ്ടുവരിക എന്ന കമ്മീഷന്റെ ശുപാർശ ഗവൺമെന്റ് നടപ്പാക്കും

ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലിക്കുന്നതിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തിരപ്പ്മേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹൃ അധ്യാപക അനധ്യാപക സംഘടനകളുമായി റിപ്പ്ലോർട്ട് നടപ്പാക്കുന്നതിന് ചർച്ച നടത്തിയെന്നും ഗവൺമെന്റ് തീരുമാനത്തെ മാനേജ്മെന്റുകൾ പൂർണ്ണമായി അംഗീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ഇടപെടലായി ഇതുമാറുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു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

ഇപ്പോൾ പുറപ്പെടുവിച്ച മസാല ബോണ്ടിന്റെ കാലാവധി അഞ്ചു വർഷമാണ്

എന്നാൽ തീവ്രവാദി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തദ്ദേശവാസികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അതിർത്തിവഴിയുള്ള നുഴഞ്ഞുകയറ്റം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വിദേശ സഞ്ചാരികളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്

ഖത്തറിൽ സന്ദർശനം നടത്തവെ ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയാണ് ഇന്നലെ ഇക്കാര്യം അറിയിച്ചത് ദോഹയിൽ ആദ്ദേഹം വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മൊഹമ്മദ് ബിൻ അബ്ദുൾ ര്ഹ്മാൻ അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി

സമാധാന പ്രവർത്തനങ്ങൾക്കിടെ ജീവൻ നഷ്ടപ്പെട്ട സമാധാന പ്രവർത്തകർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതിനാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത് ജനങ്ങളുടെ സംരക്ഷണം സമാധാനത്തിന്റെ സംരക്ഷണം എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം സമാധാന പ്രവർത്തനങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും സംഘർഷം നിലനിൽക്കുന്ന എല്ലാ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ പ്രതീക്ഷ കൂടിയാണിതെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സന്ദേശത്തിൽ പറഞ്ഞു

ആറാം സീഡുകാരായ സഖ്യത്തെയാണ് ഇവർ തോൽപ്പിച്ചത്

ആതിഥേയരായ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഉദ്ഘാടന മത്സരം ഇന്ത്യൻ സമയം മൂന്ന് മണിയ്ക്കാണ് റൌണ്ട് രോബിൻ രീതിയിലാണ് ഇത്തവണ ഗ്രൂപ്പ് മത്സരങ്ങൾ നടക്കുക

ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ ആദ്യ എതിരാളി